തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം

എൽ ഏഴാം സീസൺ മത്സരങ്ങൾക്ക് ഇന്ന് ഗോവയിൽ തുടക്കം ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മോഹൻബഗാനെ നേരിടും വാർത്തകൾ വിശദമായി തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മപരിശോധന ഇന്ന് നടക്കും ബന്ധപ്പെട്ട വരണാധികാരികളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുക സ്ഥാനാർത്ഥിക്കൊപ്പം തിരഞ്ഞെടുപ്പ് ഏജന്റ് നിർദ്ദേശകൻ എന്നിവർക്കു പുറമെ സ്ഥാനാർത്ഥി എഴുതി നൽകുന്ന ഒരാൾക്കുകൂടി വരണാധികാരിയുടെ മുറിയിലേക്ക് പ്രവേശനം അനുവദിക്കും നാമനിർദ്ദേശ പത്രികയിൽ കാണുന്ന നിസ്സാര തെറ്റ് അവഗണിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി

മൂന്ന് ഘട്ടങ്ങളായാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ അടുത്തമാസം എട്ടിനാണ് വോട്ടെടുപ്പ് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ പത്തിന് രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും

ദേദ വോട്ടെടുപ്പ് ദിവസം വോട്ട് ചെയ്യുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധി അനുവദിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി

സ്വകാര്യ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളുടെ അടിസ്ഥാനത്തിൽ അവധി അനുവദിച്ചിരിക്കുന്നത് ദ്ദേ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പാലിക്കേണ്ട മാർഗ നിർദ്ദേശങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ ദ്ദേ സമുദായങ്ങൾ ജാതികൾ ഭാഷാ വിഭാഗങ്ങൾ എന്നിവ തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ മൂർച്ചിക്കുന്നതിനിടയാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്ന് മാർഗ നിർദ്ദേശത്തിൽ പറയുന്നു

എതിർ രാഷ്ട്രീയകക്ഷി നേതാക്കളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതും അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതുമായ പ്രചാരണം പാടില്ല

സ്ഥാനാർത്ഥിക്ക് ഇരുചക്ര വാഹനം ഉൾപ്പടെ എത്ര വാഹനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാമെന്നും ഇത് തിരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധിയിൽ വരുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി കുറ്റങ്ങൾ എന്നിവ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്ക്കരൻ സംസ്ഥാന പൊലീസ് മേധാവിക്കും ജില്ലാ കലക്ടർമാർക്കും നിർദേശം നൽകി ദേദ കൊല്ലത്ത് വനിതാ സ്ഥാനാർത്ഥിയുടെ വ്യാജ പോസ്റ്റർ നവ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു

ദര സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്ന കാലത്തും മഹാമാരികളെ ചെറുക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടെന്നും കോവിഡിനെയും നാം എളുപ്പത്തിൽ അതിജീവിക്കുമെന്നും പ്രമുഖ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു

സംസ്ഥാന ഗവൺമെന്റ് തുടങ്ങിവെച്ച സുഭിക്ഷ കേരളം പദ്ധതിയുമായി ഒത്തുപോകുന്നതാണ് ഈ കമ്പനിയെന്നും അതിന് അതിരൂപതയോട് നന്ദിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ആഗോള ശൌചാലയ ദിനമായ ഇന്നലെ കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവതും സഹമന്ത്രി രത്തൻലാൽ ഖട്ടാരിയയും സംയുക്തമായി ഓൺലൈനായാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്

സ്വച്ച് ഭാരത് മിഷൻ വഴി രാജ്യത്തെ ഗ്രാമങ്ങളെ അഞ്ചുവർഷം കൊണ്ട് വെളിയിട വിസർജ്ജന മുക്തമാക്കാൻ സാധിച്ചതായി ഷെഖാവത് പറഞ്ഞു

കന്യാകുമാരി ഹസ്രത്ത്നിസാമുദ്ദീൻ കന്യാകുമാരി തിരുവനന്തപുരം വരാവൽ തിരുവനന്തപുരം പ്രത്യേക ട്രെയിനുകളും സർവീസ് ആരംഭിക്കും ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസും മലബാർ മാവേലി രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനുകളും ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസും വൈകാതെ സർവീസ് ആരംഭിച്ചേക്കും

എൽ ഏഴാം സീസൺ മൽസരങ്ങൾക്ക് ഇന്ന് ഗോവയിൽ തുടക്കം

സി അത് ലറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മൽസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എ

കോവിഡ് വ്യാപിച്ചതിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ വലിയ കായിക മൽസരമാണിത് പതിവ് ഹോം ആന്റ് എവേ മൽസരങ്ങൾ ഒഴിവാക്കി ഗോവയിലെ മൂന്ന് വേദികളിലായാണ് ഇത്തവണ എല്ലാ മൽസരങ്ങളും സംഘടിപ്പിക്കുന്നത്

ദേദ പമ്പയിൽ നിന്ന് രാത്രി ഏഴിന് ശബരിമലയിലേക്ക് അവസാനം കയറ്റിവിടുന്ന തീർഥാടകർ രാത്രി ഒൻപതിനു നട അടയ്ക്കുന്നതിന് മുമ്പായി ദർശനത്തിന് എത്തുന്നു എന്ന് സിസി ടിവിയിലൂടെ പോലീസ് ഉറപ്പാക്കും

ദേദ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നത് ഇനിയൊരറിയിപ്പുണ്ടാകുന്നതു വരെ കർശനമായി നിരോധിച്ചു